ഡി

പാലായിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് അഞ്ചിടത്തും വീജ്യിക്കുകയാണ് എൽ ഡി

ജെ പ്പി ശ്ക്തമായ ത്രികോണ മത്സരം ഒരുക്കി നിയമസഭയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്

കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ്